ത സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷും സന്ദീപ് നായരും എൻ ഐ എ കസ്റ്റഡിയിൽ

സുരേന്ദ്രനും വാർത്തകൾ വിശദമായി കോവിഡ് സംസ്ഥാനം സമൂഹ വ്യാപനത്തിന്റെ വക്കിലാണെന്നും ഒരാളിൽ നിന്ന് നിരവധി പേരിലേക്ക് രോഗം പകരുന്ന സൂപ്പർ സ്പ്രെഡ് ആയിക്കഴിഞ്ഞതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സമ്പർക്കംമൂലം കോവിഡ് കേസുകൾ കൂടുന്ന സാഹചര്യത്തിൽ ബ്രെയ്ക്ക് ദി ചെയ്ൻ ക്യാമ്പയിൻ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അദ്ദേഹം അറിയിച്ചു ഇന്നലെയും ചിലയിടങ്ങളിൽ സുരക്ഷാ മുൻകരുതലുകളും നിയന്ത്രണങ്ങളും ലംഘിച്ച് സമര പരിപാടികൾ സംഘടിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതായി മുഖ്യമന്ത്രി പറഞ്ഞു എന്തിന്റെ പേരിലായാലും ഇത് അനുവദിക്കാനാവില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് സമരത്തിന് നേതൃത്വം നൽകുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും കുറ്റകരമാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചു

രുമ കോവിഡ് ആന്റിജൻ ടെസ്റ്റ് കൃത്യതയും ആധികാരികതയും ഉറപ്പാക്കുന്നതാണെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി അണുബാധ വേഗത്തിൽ പടരുമ്പോൾ കുറച്ച് സമയത്തിനകം ഫലം കിട്ടുന്ന പരിശോധനകൾ അത്യാവശ്യമാണ് അതിനാൽ വ്യാപനം കൂടിയ സ്ഥലങ്ങളിൽ ആന്റിജൻ ടെസ്റ്റിന് ഏറെ പ്രാധാന്യമുണ്ട് തുടർ വ്യാപനം തടയാനും രോഗം ഗുരുതരമാകുന്നത് ഒഴിവാക്കാനും ഇത് സഹായിക്കും ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിലും എയിംസും ടെസ്റ്റിന്റെ ആധികാരികത ഉറപ്പാക്കിയതാണെന്ന് വകുപ്പ് വിശദീകരിച്ചു ആന്റിജൻ ടെസ്റ്റിനെപ്പറ്റി വരുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ വിശ്വസിക്കരുതെന്നും ആധികാരിക വാർത്തകൾ മാത്രം ഉൾക്കൊള്ളണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു

ആലപ്പുഴ ഇടുക്കി കോട്ടയം ജില്ലകളിൽ ഓരോ ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിച്ചു

ദരര സമ്പർക്കം വഴി രോഗബാധ വർധിക്കുന്ന സാഹചര്യത്തിൽ ആലപ്പുഴ ജില്ലയിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ

ആലുവ ചെല്ലാനം മേഖലകളിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ സ്രവ പരിശോധനയും വിപുലീകരിക്കും ആലുവ മുനിസിപ്പൽ പ്രദേശത്ത് നിയന്ത്രണങ്ങൾ കർശനമാക്കുമെന്നും സമീപ പഞ്ചായത്തുകളിൽ ബഫർസോൺ പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു ദരര കണ്ണൂർ ജില്ലയിൽ സാമ്പിൾ പരിശോധനയുടെ തോത് വർധിപ്പിക്കുന്നതിന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒരു പരിശോധനാ ഉപകരണം കൂടി സജ്ജമാക്കുമെന്ന് മന്ത്രി ഇ

ജില്ലയിലെ തീരങ്ങളിൽ അനധികൃതമായി മൽസ്യബന്ധന ബോട്ടുകളെത്തി വ്യാപാരം നടത്തുന്നതായും അവിടങ്ങളിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടാവുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായും മന്ത്രി പറഞ്ഞു ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ തഹസിൽദാർമാർക്കും പൊലിസിനും മന്ത്രി നിർദ്ദേശം നൽകി ജില്ലയിലെ രാമന്തളി പാലക്കോട് ഫിഷ് ലാന്റിംഗ് സെന്റർ അടച്ചിടാൻ ജില്ലാ കലക്ടർ ഉത്തരവിട്ടു

ജില്ലയിലെ നാദാപുരം തൂണേരി ഗ്രാമപഞ്ചായത്തുകളെ ജില്ലാ ഭരണകൂടം കണ്ടെയ്മെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു രുമ തിരുവനന്തപുരം ജില്ലയിലെ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കൂടുതൽ കോവിഡ് പരിശോധന നടത്തുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു

രോഗപ്രതിരോധത്തിന് സഞ്ചാര നിയന്ത്രണം ഏറ്റവും ഫലപ്രദമാണെന്നും ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും കലക്ടർ ആവശ്യപ്പെട്ടു

മെഡിക്കൽ ആവശ്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കുമൊഴികെ പുറത്തിറങ്ങിയാൽ കർശന നടപടിയുണ്ടാകുമെന്ന് കലക്ടർ മുന്നറിയിപ്പ് നൽകി രുമ കൊല്ലം ജില്ലയിൽ പോരുവഴി ഗ്രാമ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും പ്രത്യേക നിരീക്ഷണം ആവശ്യമായ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി കലക്ടർ ഉത്തരവിട്ടു ഉറവിടം കണ്ടെത്താനാകാത്ത കോവിഡ് കേസുകൾ ഉണ്ടായ സാഹചര്യത്തിലാണ് നടപടി രുദ കോവിഡ് കാലത്ത് വ്യാവസായിക മേഖലയുടെ ഉണർവിന് ഉതകുന്ന തരത്തിൽ വ്യവസായ പാർക്കുകളുടെ പ്രധാന്യമേറുന്നതായി മന്ത്രി കെ

പത്തനാപുരം കുണ്ടയത്ത് ആരംഭിക്കുന്ന വനിതാ വ്യവസായ എസ്റ്റേറ്റിന് തറക്കല്ലിടുകയായിരുന്നു മന്ത്രി രേര സൂപ്പർതാരം അമിതാഭ് ബച്ചനും മകൻ അഭിഷേക് ബച്ചനും കോവിഡ് സ്ഥിരീകരിച്ചു

ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം ഇന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നേക്കും രണ്ടുപേരുടെയും അറസ്റ്റ് പുലർച്ചെയോടെ രേഖപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ട്

സന്ദീപ് നായരുടെ തിരുവനന്തപുരത്തെ താമസ സ്ഥലത്ത് കസ്സംസ് റെയ്ഡ് നടത്തുന്നതിനിടെ വന്ന ഫോൺകോളുകളാണ് പ്രതികളെ പിടികൂടാൻ സഹായിച്ചത് രുഭ ലോക്ഡൌൺ കാലഘട്ടത്തിൽ പുറത്തിറങ്ങാൻപോലും ബുദ്ധിമുട്ടുന്ന സമയത്ത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ ഒളിച്ചോടിയത് ബംഗലുരുവിലേക്ക് എങ്ങനെയെന്ന് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ

ഇവർക്ക് പൊലീസ് സഹായം ലഭിച്ചുവെന്ന് വ്യക്തമാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു

സുരേന്ദ്രൻ അഭിനന്ദിച്ചു രുമ സ്വർണ്ണക്കടത്ത് കേസിൽ നാലാംപ്രതി സന്ദീപ് നായരുടെയും ആരോപണ വിധേയനായ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെയും തിരുവനന്തപുരത്തെ ഫ്ലാറ്റുകളിൽ അന്വേഷണസംഘം റെയ്ഡ് നടത്തി സ്വർണ്ണം കടത്താൻ ഉപയോഗിച്ച ബാഗ് ഉൾപ്പെടെ നിർണ്ണായക തെളിവുകൾ ലഭിച്ചതായാണ് റിപ്പോർട്ട് രുമ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനം രാജിവെക്കുക മാത്രമാണ് സ്വർണക്കടത്തുകേസിലെ സമരങ്ങൾ അവസാനിപ്പിക്കാൻ പോംവഴിയെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതിയംഗം പി

കൂടുതൽ സമര പരിപാടികൾക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു രുമ കണ്ണൂരിലെ ദേശീയ വനിതാ സീനിയർ ബോക്സിങ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച മാധ്യമ പുരസ്കാരങ്ങൾ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സമ്മാനിച്ചു